സംഭരണത്തിനുള്ള മർഗരേഖ് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു അവശ്യമരുന്നുകളുടെ തുട്ടേൾീയ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കാൻ ഉൽപാദന ബന്ധിത ഇളവ് പദ്ധതിയിൽ ഇളവ് നൽകി കേന്ദ്രം

നിർബന്ധമാക്കുന്ന കൃാമ്പയിൻ ശക്തമാക്കുമെന്ന് മുഖൃമന്ത്രി

എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ

അടുത്തിടെ രാജ്യത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വിപണികളിലും വിപണി ശക്തിക്കിളില്ലൂർ നവഭാരതം നൽകുന്ന വിശ്വാസത്തിന്റെ സൂചന ആണെന്നും അദ്ദേഹ്യ വ്യക്തമാക്കി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സൂംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളുമായി കരോൾ ് അബ്രഹാം വോയ്സ് ീ രാജ്യത്തെ കാർഷിക വ്യാവസായിക മേഖലകളിലെ വളർച്ച നിരക്ക് വർദ്ധിപ്പിക്കാൻ അടുത്തിടെ ഭരണകൂടം സ്വീകരിച്ച തൊഴിൽ പരിഷ്കാരങ്ങൾ വഴിവെക്കുമെന്ന് ശ്രീ മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇന്ത്യയെ ലോകത്തിലെ തന്നെ പ്രമുഖ ഉത്പാദക ലക്ഷ്യസ്ഥാനം ആക്കി മാറ്റാനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ തന്റെ ഭരണകൂടം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

ഇന്ത്യയ്ക്ക് മേൽ മറ്റു രാഷ്ട്രങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സൂചനയാണ് ഇതെന്നും ശ്രീ മോദി വൃക്തമാക്കി ാമ്പത്തികരംഗത്തിന്റെ പുനരുജ്ജജീവനത്തിനും അതിന്റെ വളർച്ചയക്കും വലിയ തോതിലുള്ള നിക്ഷേപവും അടിസ്ഥാന സൌകര്യ വികസനവും ആവശ്യമാണെന്നും പ്രധാനമന്ത്രി ഓർമിപ്പിച്ചു

എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നേരിട്ട നഷ്ടങ്ങൾക്ക് അടുത്തവർഷം പരമാവധി പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും കോവിഡിനെതിരെ ശാസ്ത്ര കേന്ദ്രീകൃത നടപടികളാണ് രാജ്യം സ്വീകരിച്ചതെന്നും ശ്രീ മോദി വൃക്തമാക്കി

പെട്രോളിൽ എത്തനോൾ ഇടകലർത്തുന്ന പദ്ധതിക്കായ്ക്കാണ് മാർഗരേഖ എല്ലാത്തരം എഥനോളിനും ഒരേ വില ഉണ്ടായിരുന്നിടത്ത്ഇനി മുതൽ അസംസ്കൃതവസ്തു അടിസ്ഥാനമാക്കി വില നിർണയിക്കും ചണം ഉപയോഗിച്ചുള്ള പാക്കിങ് വർധിപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങളും അംഗീകരിച്ചു

മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ റാലികളും പൊതുസമ്മേളനങ്ങളും നടത്തിവരുന്നു

അഴിമതിയും കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത ഭരണം ബിഹാറിൽ കാഴ്ച വയ്ക്കാൻ എൻ

ക്ക് മാത്രമേ സാധിക്കൂ എന്ന് സിവാൻ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഉത്തർ പ്രദേശ്ശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു കേന്ദ്രമന്ത്രി ധർമ്മ്മൂന്ദ് പ്രധാൻ കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് ബീഹാർ മുഖ്യമന്ത്രിയ്ക്കും ആർ

നേതാവുമായ നിതീഷ് കുമാർ ഉപമുഖ്യമന്ത്രി സ്റ്റുശ്രീൽ കുമാർ മോദി എന്നിവർ എൻ ഡി എ

രാജ കനയ്യാ കുമാർ സിപിഎം നേതാവ് സീതാറാം യെച്ചൂരി സിപിഐ എം എൽ നേതാവ് കവിത കൃഷ്ണൻ തുടങ്ങിയവരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റാലികൾ നടത്തി

സെറ വീക്ക് ഇന്ത്യ എനർജി ഫോറത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സുരക്ഷിതമായി സന്ദേശങ്ങൾ അയ്യയ്ക്കാൻ സേനാംഗങ്ങൾ ആപ്പ് ഉപയോഗിക്കുമെന്ന് പ്രതിരോധ മന്ത്രല്ലൂട്യവ്യത്തങ്ങൾ അറിയിച്ചു

നാല് ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ഇഡിയുടെ ആവശ്യം സിറ്റി സിവിൽ കോടതി അംഗീകരിക്കുകയായിരുന്നു കേസുമായി ബ്ലീസ്ട്ര്പ്പെട്ട് ഇന്ന് ബംഗളൂരുവിലെ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി മൂന്നരും മിന്നീക്കൂർ ചോദ്യം ചെയ്തശേഷമാണ് ബിനീഷിന്റെ ആദ്സ്റ്റു രേഖപ്പെടുത്തിയത് പിന്നാലെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു

ഏഴ് ദിവസത്തേയ്ക്കാണ് ശിവശങ്കറെ കോടതി ഇഡി കസ്റ്റഡിയിൽ വിട്ടത്